അന്തർ സംസ്ഥാന സ്വകാര്യ ടൂറിസ്റ്റ് ബസുടമകൾ സമരം തുട രാൻ തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണ അനുമതി അപേ ക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ പഞ്ചായത്ത് ഡയറ ക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചു ബിനോയ് കോടിയേരിക്കെതിരായ പീഡന പരാതിയിൽ ആരും ഒത്തു തീർപ്പിന് ശ്രമിച്ചിട്ടില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

കാർഷിക വായ്പകളുടെ മൊറട്ടോറിയം സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിക്ക് തീരുമാനിക്കാമെന്ന റിസർവ് ബാങ്ക് നിർദേ ശത്തിന്റെ സാഹചരൃത്തിൽ ഇന്നത്തെ യോഗം ഏറെ നിർണ്ണായക മാണ് കാർഷിക വായ്പകളുടെ തിരിച്ചടവ് കാലാവധി നീട്ടണമെന്ന സംസ്ഥാന മന്ത്രിസഭയുടെ നിർദേശം നടപ്പാക്കാൻ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ടെന്ന് ഗവൺമെന്റ് യോഗത്തെ അറിയിച്ചേക്കും റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിക്കാത്തിനാൽ കാർഷിക വായ്പകളിലെ ജപ്തി നടപടികൾ ഒഴിവാക്കാനാവില്ലെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാ നതല ബാങ്കേഴ്സ് സമിതി പത്രപരസ്യം നൽകിയിരുന്നു കാർഷിക വായ്പയുടെ മൊറട്ടോറിയം കാലാവധി നീട്ടുന്ന കാര്യ ത്തിൽ ഇടപെടമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപി ധന മന്ത്രി നിർമ്മലാ സീതാരാമന് നിവേധനം നൽകി റിസർവ് ബാങ്ക് അനുമതി നൽകാത്തിനാൽ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാനതല ബാങ്കിങ്ങ് സമിതി തീരുമാനിച്ചതിനെ തിരെയാണ് നിവേദനം നൽകിയത് അന്തർ സംസ്ഥാന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുടമകൾ സമരം തുട രാൻ തീരുമാനിച്ചു ഇന്നലെ തിരുവനന്തപുരത്ത് മന്ത്രി എ

ശശീ ന്ദ്രനുമായി ബസുടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം നീളുന്നത് കല്ലട ബസിലെ സംഭവങ്ങളെ തുടർന്ന് സ്വകാരൃ അന്തർ സംസ്ഥാന ബസുകളിൽ ഗതാഗത വകുപ്പ് അനാവശൃ പരിശോധന നടത്തുന്നു എന്നാരോപിച്ചാണ് ഉടമകൾ സമരം തുടങ്ങിയത് ഇത്തരം പരിശോധനകൾ അവസാനിപ്പിക്കണ മെന്ന ആവശ്യം ചർച്ചയിൽ മന്ത്രി നിരസിച്ചിരുന്നു പെർമിറ്റിന്റെ പേരിൽ പിഴയടക്കം ശിക്ഷാ നടപടികൾ അവസാ നിപ്പിക്കണമെന്ന ആവശ്യം പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന് മന്ത്രി അറിയിച്ചു എന്നാൽ പരിശോധന നിർത്തണമെന്ന ആവശ്യം അദ്ദേഹം തള്ളി പ്രശ്ന പരിഹാരത്തിന് മുഖ്യമന്ത്രിയെ സമീപിക്കു മെന്ന് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു

കെട്ടിട നിർമ്മാണ അപേ ക്ഷകളിൽ കാലതാമസം ഒഴിവാക്കാൻ മാർഗ നിർദേശത്തിൽ ആവ ശ്യപ്പെട്ടിട്ടുണ്ട്

മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നിയമ ലംഘന ങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് വകുപ്പ് നിർദേശം നൽകി ഹരിത കേരളം മിഷന്റെ ഹരിത നിയമ ബോധവൽക്കരണ പ്രചാരണ പരിശീലനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണ്മെന്നും വകുപ്പിന്റെ മാർഗ നിർദേശത്തിൽ പറയുന്നു

ജനുവരിയിൽ ബിനോയിയുടെ പേരിൽ കോടതിയിൽ നിന്ന് വക്കീൽ നോട്ടീസ് വന്നപ്പോഴാണ് ഇതേകുറിച്ച് വിവരമറിഞ്ഞത് അമ്മ എന്ന നിലയിൽ ഇതിന്റെ നിജസ്ഥിതി അറിയാൻ തന്റെ ഭാരൃ മുംബൈയിൽ പോയെന്നും കോടിയേരി പറഞ്ഞു പാർട്ടിയോ താനോ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്ത മാക്കി പാർട്ടി സംസ്ഥാന കമ്മറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരി ക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോടിയേരി ഇക്കാര്യം അറിയിച്ചത് പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആന്തൂർ നഗരസഭ ചെയർപെഴ്സൺ പി

ശ്യാമളക്ക് വീഴ്ച സംഭ വിച്ചിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു

സംസ്ഥാന ലഹരി വർജ്ജന മിഷൻ വിമുക്തി മറ്റ് വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി രാവിലെ എൻ എസ്എസ് വൊളന്റിയർമാരുടെ ലഹരി വിരുദ്ധ സന്ദേശ യാത്രയും വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ കലാപരിപാടികളും നടത്തും മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ ചെയർമാനും ആറ് അംഗങ്ങളും ഇന്ന് രാവിലെ അധികാരമേൽക്കും

മോഹൻ കുമാറാണ് കമ്മീ ഷൻ ചെയർമാൻ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മന്ത്രി പി തി ലോത്തമന്റെ സാന്നിധൃത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് കേരളത്തിലെ സിഎസ്ഐ പെന്തകോസ്ത്ത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങളെ പറ്റി സംസ്ഥാന ന്യൂനപക്ഷുകമ്മീഷൻ തയാറാക്കിയ പഠന റിപ്പോർട്ട് നാളെ ഗവൺമെൻ്റിന് ്കൈമാറും നിയമസഭാ മീഡിയാ ഹാളിൽ കമ്മീഷൻ ചെയർമാൻ പി

ഹനീഫ മന്ത്രി ഡോ

ജലീലിന് റിപ്പോർട്ട് സമർപ്പിക്കും

അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാലും വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്രൈവിങ്ങ് ലൈസൻസ് സ്മാർട്ട് കാർഡ് മാതൃകയിൽ പരിഷ്ക്ക രിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി അറിയിച്ചു രാജ്യവ്യാ പകമായി ഡ്രൈവിങ്ങ് ലൈസൻസിന് ഏകീകൃത രൂപവും പൊതു നിലവാരവും നടപ്പാക്കുമെന്നും രാജ്യസഭയിൽ എഴുതി നൽകിയ മറു പടിയിൽ മന്ത്രി വൃക്തമാക്കി

ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും ലോർഡ്സിൽ ഉച്ചക ഴിഞ്ഞ് മൂന്നിനാണ് മത്സരം കുറ്റ്യാടി പക്രന്തളം ചുരം റോഡ് ഉടൻ വികസിപ്പിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ നിയമസഭയെ അറിയിച്ചു ഇപ്പോഴത്തെ റോഡ് വീതി കൂട്ടി നവീകരിക്കാൻ എസ്റ്റിമേറ്റ് തയാറാക്കാൻ നിർദേശം വിധിക്കും പ്രസ നൽകിയിട്ടുണ്ട് ആന്തൂർ നഗരസഭയിലെ വെള്ളിക്കീൽ ഇക്കോടൂറിസം പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ ആന്തൂർ നഗരസഭ തടസ്സമുണ്ടാക്കിയെന്ന ആരോപണം അടിസ്ഥാന രഹിതമാണെന്ന് നഗരസഭാ ചെയർപേ ഴ്സൺ വാർത്താ കുറിപ്പിൽ അറിയിച്ചു ഈ പദ്ധതിയുമായി ബന്ധ പ്പെട്ട് ഒരു കരാറിലും നഗരസഭയും സംരഭകയും ഏർപ്പെട്ടിട്ടില്ലെന്ന് ചെയർപേഴ്സൺ വൃക്തമാക്കി

പൊന്നാനിയിൽ നിന്ന് പോയ പകുതിയിലേറെ വള്ളങ്ങൾക്ക് നാല് ലക്ഷത്തിൽ പരം രൂപയുടെ ചെമ്മീൻ ലഭിച്ചു

കഴിഞ്ഞ മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായാണ് വള്ള ങ്ങൾക്ക് ഇത്രയേറെ ചെമ്മീൻ ലഭിക്കുന്നതെന്ന് തൊഴിലാളികൾ പറ ഞ്ഞു

ജയകുമാർ ഉദ്ഘാടനം ചെയ്യും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസി ഡന്റ് ഡോ ഖദീജ മുംതസ് മുഖ്യാതിഥിയായിരിക്കും

കാഴ്ചാ പരിമിതരായ വനിതകൾക്ക് വേണ്ടി കലാമത്സര ങ്ങളും സെമിനാറുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഇടുക്കി ജില്ലയിൽ കിഫ്ബി ധനസഹായത്തോടെ പ്രവർത്തി ക്കുന്ന സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു

കോഴിക്കോട് റൂറൽ ജില്ലാ പൊലീസ് സൂപ്രണ്ടായി കെ

രണ്ട് തവണ രാഷ്ട്രപ്പതിയുടെ പൊലീസ് മെഡൽ നേടിയ അദ്ദേഹം നേരത്തെ കൊല്ലം റൂറൽ എസ്പിയായിരുന്നു

കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി

മെഡിക്കൽ കോളേജിൽ മരുന്നുകളും ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങളും ലഭ്യമല്ലാത്തതിനാൽ രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതായി അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു

കമ്മീഷൻ അധ്യക്ഷ എം

ജോസഫൈന്റെ നേതൃത്വത്തിലായിരുന്നു അദാല ത്ത്

പരിസര വൃക്തി ശുചിത്വം പാലിക്കുകയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടിക്കുകയും ചെയ്താൽ രോഗബാധ നിയന്ത്രിക്കാനാവുമെന്ന് ഡിഎംഒ പറഞ്ഞു കൊല്ലം ജില്ലയിൽ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിപ്പിക്കുന്ന കെട്ടിടങ്ങൾ പൂട്ടുകയോ ലൈസൻസും പെർമിറ്റും റദ്ദാക്കുകയോ ചെയ്യാൻ ദുരന്തനിവാരണ നിയമപ്രകാരം ജില്ലാ കലക്ടർ ഉത്തരവായി

കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുൻ ചെയർമാനും ആല പ്പുഴ നഗരസഭാ കൌൺസിലറും ആയിരുന്ന പി ബിനു നിര്യാതനായി

സംസ്കാരം ഇന്നുച്ചയ്ക്ക് ആലപ്പുഴ ചാത്ത നാട് ശ്മശാനത്തിൽ വടകരയിൽ നാലു വയസുകാരിക്കൊപ്പം ട്രെയിനിനു മുമ്പിൽ ചാടിയ യുവതി മരിച്ചു

പഴങ്കാവ് പിലാക്കണ്ടി ജിനീഷിന്റെ ഭാര്യ ഷാനയാണ് മരിച്ചത്

തിരുപ്പതി സ്വദേശിക ളാണ് വാനിലുണ്ടായിരുന്നത് മിനി ലോറിയിലെ രണ്ട് പേരും പരി ക്കേറ്റവരിൽ ഉൾപ്പെടുന്നു